ബെർഹാംപൂരിലും രണ്ട് പുതിയ ഐസറുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസുഭാ്യോഗം അനുമതി നൽകി

ഉപതിരഞ്ഞെടുപ്പ്

ഗോപാൽപൂർ മേഖലയിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും വ്യാപകമായി കടപുഴകി ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒഡീഷ തീരമേഖലയിലൂടെ കാറ്റ് പശ്ചിമബംഗാൾ തീരത്തേയ്ക്ക് നീങ്ങി ദുർബലമാകുമെന്ന് കരുതുന്നു ഒഡീഷയുടെ തെക്ക് കിഴക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

മൂവായിരത്തിലേറെ കോടി രൂപ ചെലവ് വരും

ഐ എസ് എഫ് ന്റെ സൂവർണ ജൂബിലി ആഘോ ഷങ്ങളുടെ സമാപനസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായി രുന്നു അദ്ദേഹം പുതിയ നയം വ്യോമയാന മേഖലയുടെയും രാജ ്യത്തെ സമ്പദ് വൃവസ്ഥയുടെയും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു കാർഷിക ഉത്പന്നങ്ങൾ വ്യോമമാർഗം രാജ്യ ത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് പുതിയ കാർഗോ നയത്തിൽ വൃവസ്ഥയുണ്ടാകും രാജ്യത്തെ വ്യോമയാന മേഖല ആഗോള നിലവാരത്തിലാണെങ്കിലും ഇനിയും കൂടുതൽ മെച്ചപ്പെടേ ണ്ടതുണ്ടെന്ന് ശ്രീ സുരേഷ് പ്രഭു പറഞ്ഞു

വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കൂട്ട്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം രണ്ടു ദിവസത്തെ കൃഷ്ണന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ചെന്നൈയിലെത്തിയത്

ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗമാണ് ഇത് ഇത് സംബന്ധിച്ചു വിജ്ഞാപനം പുറപ്പെടുവിച്ചത്

നേരത്തെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഹൈക്കോടതി ഏർപ്പെടുത്തിയി രുന്ന നിരോധനം നീക്കി നാളെ അന്തിമ പട്ടിക പ്രസിദ്ധീകരി ക്കാനാണ് നിർദേശിച്ചിരിക്കുന്നത്

ഇരു രാജ്യ ങ്ങളും തമ്മിൽ പ്രതിരോധവും സുരക്ഷയും കൂടുതൽ ശക്തമാക്കുന്ന തിന്റെ ഭാഗമായാണ് സന്ദർശനം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലിയുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ കൂടി ക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുളള ആഗോള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക

കിർഗിസ്ഥാനെ യോഗത്തിന്റെ പ്രധാന ചുമതല ഏൽപിച്ചതിന് ശേഷ മുളള ആദ്യ കൂടിക്കാഴ്ചയാണിത് അഫ്ഗാനിസ്ഥാൻബെലാറസ് ഇറാൻ മംഗോളിയ എന്നീ രാജ്യങ്ങളുടെ കൂടി സഹകരണം ഉറപ്പിച്ചു കൊണ്ട് വികസന വഴിയിൽ മുന്നേറാൻ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അവ സരം കൂടിയാണിത്

ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തുറന്ന സമീപനം സ്വീകരിക്കാമെന്ന വിഷയവും ചർച്ചയായി

അസാമിലെ ചില ഗൂർഖ വിഭാഗങ്ങളെ വിദേശികളുടെ പട്ടിക യിൽപ്പെടുത്തിയെന്നാരോപിച്ച് ഓൾ അസാം ഗൂർഖ വിദ്യാർത്ഥിയൂ ണിയൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗിന് നിവേദനം നൽകിയിരുന്നു ഇന്ത്യൻ പൌരത്വം നേടുന്നതിൽ ഗൂർഖ വിഭാഗങ്ങൾ നേരിടുന്ന തടസങ്ങൾ സംബന്ധിച്ച ക്ലോർട്ട് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ ഔദ്യോഗികമായി അറ്റിയിട്ടു

മരിച്ചവ രുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ജോലി നൽകാനും അവരുടെ മക്കൾക്ക് ബിരുദതലം വരെ സൌജന്യ വിദ്യാഭ്യാസം നൽകാനും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് കേന്ദ്രം നിർദ്ദേശിച്ചു

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

കെ നീന വി മുഹമ്മദ് അനസ് കുഞ്ഞുമുഹമ്മദ് ജിത്തു ബേബി പി

ചിത്ര എന്നിവർ മുഖ്യമന്ത്രിയിൽ നിന്ന് കൃാഷ് അവാർഡ് ഏറ്റുവാങ്ങി ദീപിക പള്ളിക്കൽ സുനൈന കുരുവിള ശ്രീജേഷ് എന്നിവരുടെ അവാർഡ് രക്ഷകർത്താക്കളാണ് ഏറ്റുവാങ്ങിയത്

ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മുൻ താരം ബോബീ അലോഷ്യസിനെ ചടങ്ങിൽ ആദരിച്ചു

കായിക മേഖലയ്ക്ക് തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം നിർമിക്കാൻ സ്പോർട്സ് കൌൺസിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു

രാജഗോപാൽ എം

എ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി

ദാസൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏറെ കാത്തിരിപ്പിനൊടുവിൽ ടീമിൽ തിരിച്ചെത്തിയ മായങ്ക് അഗർവാളിന് ഓപ്പണിംഗ് സ്ഥാനം ലഭിച്ചേക്കാം

ചന്ദ്രശേഖർ റാവു കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പിദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ തടസം നിൽക്കുന്നതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തെലങ്കാനയിലെ കരിംനഗറിൽ സംഘടിപ്പിച്ച പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ സഹായത്തോടെയാണ് സംസ്ഥാൻ ഗവൺമെന്റ് പദ്ധതി നടപ്പാക്കുന്നത് മാജുലി ദ്വീപിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് റോ റോ സർവ്വീസ് ആരംഭിക്കുന്നത്

വരുന്നതോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങലിലെ ഉൾനാടൻ ജലഗതാഗതത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും

ഇൌമാസം രണ്ടാം തീയതി മുതലാണ് ഖഷോഗ്ഗിയെ ഇസ്താംബൂളിൽ നിന്ന് കാണാതായത്